തന്റെ റഷ്യൻ സന്ദർശനത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

മാറ്റാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റ്

ടൈറ്റാനിയം അഴിമതി കേസിന്റെ അന്വേഷണം സി ബി ഐയ്ക്ക് കൈമാറാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു

എഫ് സ്ഥാനാർത്ഥി ജോസ് ടോം പുലിക്കുന്നേലിന് തെരഞ്ഞെടുപ്പ് ചിഹ്നമായി രണ്ടില നൽകില്ലെന്ന് കേരള കോൺഗ്രസ് എം വർക്കിംഗ് ചെയർമാൻ പി

ജോസഫ്

റഷ്യയിലെ വ്ളാഡി വസ്റ്റോക്കിൽ നടക്കുന്ന കിഴക്കൻ സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കുന്നതിനായി യാത്ര പുറപ്പെടും മുമ്പ് പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത്

മഹാരാജാസ് കോളേജ് ജംഗ്ഷൻ മുതൽ തൈക്കൂടം വരെയുള്ള കൊച്ചി മെട്രോയുടെ പുതിയ പാത ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി ലക്ഷ്മിശ്രീവിജയ

ഇതിനായുള്ള സ്ഥലം ഏറ്റെടുക്കൽ അന്തിമഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന കേന്ദ്രസഹമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു

പേട്ടയിൽ നിന്നും എസ്

ജംഗ്ഷനിലേക്കുള്ള പാതയുടെ നിർമ്മാണോദ്ഘാടനവും ജലമെട്രോ പദ്ധതിയുടെ ആദ്യ ടെർമിനലിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവ്വഹിച്ചു

എറണാകുളം സൌത്ത് കടവന്ത്ര എറണാകുളം വൈറ്റില തൈക്കുടം എന്നീ അഞ്ച് മെട്രോ സ്റ്റേഷനുകളാണ് പുതിയ പാതയിലുള്ളത്

എം

ന്യൂസ് ഡെസ്ക് ആകാശ്രവാണി

എസ് ആർ

ഈ പ്രക്രിയ നാല് സെക്കുന്റ് ന്റീണ്ടുനിന്നു

ടൈറ്റാനിയം കമ്പനിയിൽ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ അഴിമതി നടന്നതായാണ് ആരോപണം

ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് സത്യവാങ്മൂലം സമർപ്പിച്ചു പിറവം പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് സത്യവാങ്മൂലം നൽകിയത്

കൃഷിവകുപ്പ് ഹോർട്ടികോർപ്പ് വി എഫ്

സി കെ കുടുംബശ്രീ എന്നിവയുടെ സംയുക്ത ആഭിമുഖൃത്തിലാണ് വിപണികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുളളത്

ജോസഫ്

സിമുലേറ്റർ ആരോഗ്യമേഖലയിൽ ആധുനികവും അടിസ്ഥാനപരവുമായ മാറ്റങ്ങളാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി കെ

എറണാകുളം ജനറൽ ആശുപത്രിയിൽ സി

സിമുലേറ്ററിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആരോഗ്യമന്ത്രി

റ്റി സിമുലേറ്റർ വഴി ആധുനിക രീതിയിലുള്ള കാൻസർ ചികിത്സ ഇമേജിംഗ് സൌകര്യം എന്നിവ ലഭ്യമാകും

നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ കൃഷിവകുപ്പിലെ മിനിസ്റ്റീരിയൽ ഉദ്യോഗസ്ഥർക്കായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

അമൃത് പദ്ധതിയിൽ കൊല്ലത്ത് പൂർത്തിയാക്കിയ തങ്ങൾകുഞ്ഞ് മുസലിയാർ പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓണാഘോഷങ്ങൾ ഹരിതചട്ടം പാലിച്ച് നടത്താനും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനും ശ്രദ്ധിക്കണം

ഐ

കസ്റ്റ്ഡ്ഡ് കാലാവധി തീരുന്നതുവരെ ഇടക്കാല ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകരുതെന്നും കോടതി പറഞ്ഞു

ഓണ വിപണി ലക്ഷ്യമിട്ട് സംസ്ഥാന ഹോർട്ടികോർപ്പ് പച്ചക്കറി സംഭരണത്തിനായി രംഗത്തുണ്ട് ഇടനിലക്കാർ നൽകുന്നതിനേക്കാൾ കൂടിയ വിലയ്ക്കാണ് കർഷകരിൽ നിന്ന് ഹോർട്ടികോർപ്പ് ഉത്പന്നങ്ങൾ സംഭരിക്കുന്നത്